ഗർഭിണികളും ദിവ്യാംഗരൂർ ഓഫീസുകളിൽ ഹാജരാകേണ്ടതില്ലെന്ന് ക്യേന്ദ്രം

ചികിത്സയ്ക്ക് പദ്ധതിയുമായി മധ്യപ്രദേശ് സർക്കാർ

കോവിഡ് രണ്ടാം തരംഗത്തെ പ്രതിരോധിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാർ നൽകിയ സഹായങ്ങൾക്ക് ശ്രീ മോദി നന്ദി രേഖപ്പെടുത്തി ആഗോളതലത്തിൽ കോവിഡ് പ്രതിരോധത്തിനായി വാക്സിൻ മരുന്ന് എന്നിവ എല്ലാവർക്കും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു ലോക വൃാപാര സംഘടനയുടെ ട്രിപ്സ് കരാറിൽ ഇന്തൃയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും താൽക്കാലിക ഇളവുകൾ നൽകാനായി ഓസ്ട്രേലിയയുടെ പിന്തുണ വേണമെന്ന് ശ്രീ മോദി അഭ്യർത്ഥിച്ചു

ഇന്തോ പസഫിക് മേഖലയിലെ വികസന്ത്തിനായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഒ്ട്സ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി

ഈ സംസ്ഥാനങ്ങളിലെ ആരോഗൃ പരിരക്ഷാ സൌകര്യങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട നടപടികളും പ്രധാനമന്ത്രി അവലോകനം ചെയ്തതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു തെലങ്കാന ആന്ധ്രാ പ്രദേശ് ഒഡിഷ ഝാർഖണ്ഡ് പുതുച്ചേരി ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലെ സാഹചര്യങ്ങൾ അതത് മുഖ്യമന്ത്രിമാരുമായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ചർച്ച ചെയ്തിരുന്നു

തൊഴിലിടത്തും പുറത്തും ഉദ്യോഗസ്ഥരെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സുരക്ഷിതരായിരിക്കണമെന്നും പേഴ്സണൽ ട്രെയിനിങ് വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു

വിശദാംശങ്ങളു്മായി ദേവിപ്രിയ

കർണാടകയിൽ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം അഞ്ച് ലക്ഷം കടന്നു

ഒഡീഷയിൽ ലോക്ഡൌൺ തൂടങ്ങി മൂന്ന് ദിവസത്തിനു ശേഷവും കോവിഡ് ബാധിതരൂടെ എണ്ണത്തിൽ സാരമായ കുറവ് രേഖപ്പെടുത്തുന്നില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് സന്നദ്ധ പ്രവർത്തകരുടെ സഞ്ചാരം തടയില്ല കോവിഡ് വാക്സിനേഷനായി വാഹനം അനുവദിക്കും ചരക്ക് ഗതാഗതം തടയില്ല

ചികിത്സയിലുള്ള ആകെ രോഗികളുടെ എണ്ണം നാല് ലക്ഷം കടന്നു

ഇതിന്റെ ഭാഗമായി രാജ്യമൊട്ടാകെയുള്ള ഓക്സിജൻ കണ്ടെയ്നറുകളുടെയും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളുടെയും നീക്കം സേന ഊർജിതമാക്കി

ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങി കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സംസ്ഥാനങ്ങളിലും റെയിൽവേ ഐസൊലേഷൻ കോച്ചുകൾ വിതരണം ചെയ്തിട്ടുണ്ട്

ഡൽഹി മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ഗുജറാത്ത് മധ്യപ്രദേശ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള മരുന്ന് വിതരണം ഗണ്യമായി വർധിപ്പിക്കുകയും ചെയ്തു

കേരളം ജൽ ജീവൻ മിഷന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വാർഷിക കർമ്മപദ്ധതി ഇന്ന് അവതരിപ്പിച്ചതായി ജലശക്തി മന്ത്രാലയം അറിയിച്ചു

കഴിഞ്ഞവർഷം നാല് ലക്ഷത്തോളം പേർക്ക് ഇത് ലഭിച്ചതായി മന്ത്രാലയം അറിയിച്ചു

പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ കൂടുതലുള്ള ജില്ലകൾക്ക് പൈപ്പ് ജലവിതരണ പദ്ധതിയിൽ മുൻഗണന നൽകണമെന്നും കേന്ദ്രം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു

ന്യൂഡൽഹിയിൽ കൊറോണ സംബന്ധമായ്ക് രോഗങ്ങളോട് പൊരുതിയാണ് അദ്ദേഹം അന്തരിച്ചത്

സാഹിതൃ വിമർശനം ബാലസ്ട്ഹിതൃം നാടകം തുടങ്ങിയ വിഭാഗങ്ങളിൽ അദ്ദേഹം ബ്ലൂർവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്